പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

മധ്യപ്രദേശ് നിയമസഭയിൽ നാളെ വിശ്വാസ വോട്ട് തേടാൻ മുഖ്യമന്ത്രി കമൽനാഥിന് ഗവർണർ നിർദേശം നൽകി

പുതുശ്ശേരി രാമചന്ദ്രന്റെ സംസ്കാരം വൈകീട്ട് ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ശാന്തികവാടത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം എ ടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ഇന്ത്യയെ നയിക്കും വൈകിട്ട് അഞ്ചിനാണ് ചർച്ചു

എന്നാൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

വോയ്സ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഫലപ്രദമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ജില്ലകളിൽ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത അവലോകന യോഗങ്ങളുടെ തുടർനടപടിയായി ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിൽ യോഗങ്ങൾ നടക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തുന്നവരിൽ കൂടുതൽ നിരീക്ഷണം ആവശ്യമായവരെ പാർപ്പിക്കാൻ വിമാനത്താവളങ്ങൾക്കടുത്തായി കൊറോണാ കെയർ സെന്ററുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

സ്വകാര്യ ആശുപത്രികളും നിശ്ചിത എണ്ണം രോഗികളെ കിടത്താൻ സൌകരൃമൊരുക്കണമെന്നും മുഖൃമന്ത്രി നിർദേശിച്ചു അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധപുലർത്താൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദേശം നൽകിയിട്ടുണ്ട് ബീച്ചുകൾ പാർക്കുകൾ തുടങ്ങിയവയിൽ ആൾകൂട്ടം ഒഴിവാക്കണം

ആരും പുറത്തിറങ്ങരുത് എന്ന സമീപനമില്ലെന്നും ഷോപ്പിങ് മാളുകൾ അടച്ചിടാൻ നിർദേശിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർവ്വകലാശാലകൾ നിശ്ചയിച്ച പരീക്ഷകൾ മുൻകരുതലുകൾ ഏർപ്പെടുത്തി മാറ്റമില്ലാതെ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

ജയശങ്കർ അറിയിച്ചു

രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയ നാലായിരത്തിലേറെ പേർ നിരീക്ഷണത്തൽ കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടുപേർ രാജ്യത്ത് കൊറോണ ബാധിച്ച് മരിച്ചതായി അദ്ദേഹം പറഞ്ഞു

കൊറോണ വൈറസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ സ്വീകരിച്ച നടപടികളും ചർച്ചാ വിഷയമായി

കൊറോണ പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നിർദേശങ്ങളെ കുറിച്ച് ബോധവത്കരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിപുലമായ ക്യാംപയിൻ സംഘടിപ്പിക്കണമെന്ന് ഗവൺമെന്റ് നിർദേശിച്ചു വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്നും എത്തുന്നവരുടേയും അവരുമായി ഇടപഴകുന്നവരുടേയും പട്ടിക തയ്യാറാക്കണം

ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോംസ്റ്റേകൾ എന്നിവിടങ്ങളിൽ നിലവിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് അതത് സ്ഥാപനങ്ങളിൽ തന്നെ തുടർന്നും താമസിക്കാമെന്നു ജില്ലാ കലക്ടർ എം

എന്നാൽ വിദേശികളടക്കം വിനോദസഞ്ചാരികളെ കർശനമായി നിരീക്ഷിക്കുമെന്നും അവർ പറ ഞ്ഞു കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി വിവാഹം ഉൾപ്പെടെ ചടങ്ങുകൾക്ക് വയനാട്ടിൽ നിയന്ത്രണം ഏർപ്പെടുത്തി

രോഗം സ്ഥിരീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിൽസയിൽ കഴിയുന്ന നാലു പേരുടെയും ആരോഗൃ നില തൃപ്തികരമാണെന്ന് ആരോഗൃ വകുപ്പ് അറിയിച്ചു കൊറോണ പ്രതിരോധ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ജീവനക്കാർ അവധി എടുക്കരുതെന്ന് തിരുവനന്തപുർം ജില്ലാ കലക്ടർ കെ

ആദ്യഘട്ടമെന്ന നിലയിൽ എല്ലാ പ്രധാന ഹോസ്പിറ്റലുകളിലും ത്രിതല ട്രിയാജ് സിസ്റ്റവും പ്രാഥമിക ആരോഗ്യകേന്ദ്രത്തിൽ ദ്വിതല ട്രിയാജ് സിസ്റ്റവും നടപ്പിലാക്കി കഴിഞ്ഞതായി ജില്ലാ കലക്ടർ അറിയിച്ചു

മുഖ്യമന്ത്രിയുടെ നിർദേശത്തിൽ ഒരു ലക്ഷം യൂണിറ്റ് ഉൽപാദിപ്പിക്കാനാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു

പി നൽകുന്നത്

സംസ്ഥാനത്തെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ബി

പി പ്രവർത്തകരും വിവിധ മോർച്ചകളുടെ പ്രവർത്തകരും രംഗത്തിറങ്ങുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

മധ്യപ്രദേശിൽ നാളെ നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ ലാൽജി ടാൻഠൺ മുഖ്യമന്ത്രി കമൽനാഥിനോട്ട് ആവശ്യപ്പെട്ടു നിയമസഭയിൽ ഗവർണറുടെ നയ്പ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞാലുടൻ വിശ്വാസവോട്ട് തേട്ടണ്മെന്ന് ആവശ്യപ്പെട്ട് രാത്രി വൈകിയാണ് ഗവർണർ കത്ത് നൽകിയത് കമൽനാഥ് ഗവൺമെൻറിനോട് വിശ്വാസവോട്ട് തേടാൻ നിർദ്ദേശിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ബി

പി പ്രതിനിധി സംഘം ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു

എമാരുടെ രാജിയെത്തുടർന്നാണ് മധ്യപ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത് അന്തരിച്ച കവിയും ഭാഷാ പണ്ഡിതനുമായ ഡോ പുതുശ്ശേരി രാമചന്ദ്രൻറെ സംസ്കാരം വൈകിട്ട് മൂന്നിന് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ടുവരെ വീട്ടിൽ പൊതുദർശനത്തിന് വെയ്ക്കും ഇന്നലെ വൈകിട്ട് നാലരയോടെ വെള്ളയമ്പലത്തെ വീട്ടിലായിരുന്നു ഡോ പുതുശ്ശേരി രാമചന്ദ്രൻറെ അന്ത്യം

സംസ്ഥാന ഗവൺമെൻറിൻറെ എഴുത്തച്ഛൻ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്

ഭാഷയ്ക്കും സംസ്കാരത്തിനും പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും കനത്ത നഷ്ടമാണ് പുതുശ്ശേരി രാമചന്ദ്രന്റെ നിര്യാണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി എ കെ ബാലനും ബി

പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഉൾപ്പെടെ നേതാക്കൾ പുതുശ്ശേരി രാമചന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം എ ടി കെ കൊൽക്കത്തക്ക് മഡ്ഗാവിൽ നടന്ന ഫൈനലിൽ ചെന്നൈയിൻ എഫ് സിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് എ

എസ് എൽ ഫൈനലുകളിലും കിരീടം നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം എ

കെ സ്വന്തമാക്കി ഐലീഗ് ഫുട്ബാളിൽ ഇന്ന് കോഴിക്കോട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന ഗോകൂലം കേരളയും ഇന്ത്യൻ ആരോസും തമ്മിലെ മത്സരം റദ്ദാക്കി

നിർമ്മാണം പൂർത്തിയായ ഹരിപ്പാട് അമ്പലപ്പുഴ ഇരട്ടപ്പാതയിൽ ആദ്യ ട്രെയിൻ ഓടി ഇന്നലെ രാത്രി തിരുവനന്തപുരം ഗുരുവായൂർ ഇൻറർസിറ്റി എക്സ്പ്രസ്സാണ് കന്നിയാത്ര നടത്തിയത് പെട്രോളിയം വില വർധന പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

അധികമായി ലഭിക്കുന്ന നികുതി ഒഴിവാക്കി സംസ്ഥാന ഗവൺമെന്റ് യു ഡി എഫ് കാല മാതൃക സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വൈറസ് മുൻകരുതൽ ജാഗ്രതയുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേരുചേർക്കാൻ സമയം ഒരു മാസമെങ്കിലും വർധിപ്പിക്കണമെന്നും മജീദ് ആവശ്യപ്പെട്ടു

പുറത്തൂർ പടിഞ്ഞാറെക്കര ബ്രീച്ചും അടച്ചിടും

കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിലെ മതസംഘടനാ നേതാക്കളുടെ യോഗം ഇന്ന് രാവിലെ ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേരും വയനാട്ടിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്ന് മുതൽ ബുധനാഴ്ച വരെ അടച്ചിടുമെന്ന് ഡി